കൊച്ചിയിൽ കെമിക്കൽ പ്രൊജക്ടും പെട്രോ സാഗരിക അന്താരാഷ്ട്ര യാത്രാ ടെർമിനലും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും

വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാടും കേരളവും സന്ദർശിക്കും രാവിലെ ചെന്നൈയിൽ എത്തുന്ന പ്രധാനമന്ത്രി ഒട്ടേറെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും പുതിയ പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും തദ്ദേശീയമായി നിർമിച്ച ആധുനിക അർജ്ജുൻ യുദ്ധടാങ്ക് അദ്ദേഹം സൈന്യത്തിന് കൈമാറും ചെന്നൈ മെട്രോ റെയിൽ ഒന്നാംഘട്ടത്തിന്റെ വിപുലീകരണ പദ്ധതി അദ്ദേഹം നാടിന് സമർപ്പിക്കും മെട്രോയുമായി ബന്ധപ്പെട്ട ഏതാനും പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി കൊച്ചിയിലെത്തും ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ നിർമിച്ച പെട്രോ കെമിക്കൽ പ്രൊജക്ട് നാടിന് സമർപ്പിച്ച ശേഷം കൊച്ചി തുറമുഖത്ത് അന്താരാഷ്ട്ര യാത്രാ ടെർമിനൽ സാഗരിക പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും കൊച്ചി ഷിപ്പിയാർഡിലെ മറൈൻ എഞ്ചിനീയറിംഗ് പരിശീലന കേന്ദ്ര ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി കൊച്ചി തുറമുഖത്തെ സൌത്ത് കോൾ ബർത്തിന്റെ പുനർ നിർമാണത്തിന് തറക്കല്ലിടുകയും ചെയ്യും ദേദ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘം തിരുവനന്തപുരത്തെത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ കമ്മീഷണർമാരായ സുശീൽ ചന്ദ്ര രാജീവ് കുമാർ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംഘത്തിലുണ്ട് ഇന്ന് സംസ്ഥാന മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ ചീഫ് സെക്രട്ടറി പൊലീസ് നോഡൽ ഓഫീസർ എന്നിവരടക്കം മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സംഘം കൂടിക്കാഴ്ച നടത്തും

നാളെയും ഔദ്യോഗിക ചർച്ചകൾ തുടരും തിങ്കളാഴ്ച സംഘം ഡൽഹിയിലേക്ക് മടങ്ങും

ദേദ തിരുവനന്തപുരത്ത് കേരളാ രാജ്യാന്തര ചലച്ചിത്ര മേള ഇന്ന് നാലാം ദിവസം വൻജനപങ്കാളിത്തമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് സംവിധായകർ എല്ലാതരം പ്രേക്ഷകരെയും കണക്കിലെടുത്ത് സിനിമകൾ നിർമിക്കാൻ തയ്യാറാകണമെന്ന് ഫ്രഞ്ച് സംവിധായകൻ ഴാംങ് ലുക് ഗൊദാർദ് പറഞ്ഞു പ്രേക്ഷകരോട് കാണിക്കുന്ന ബഹുമാനം കൂടിയാണ് സിനിമയിൽ പ്രതിഫലിക്കേണ്ടതെന്ന് മേളയിൽ പ്രേക്ഷകരുമായി നടത്തിയ സംവാദത്തിൽ അദ്ദേഹം പറഞ്ഞു ദേദ ഇന്ന് ലോക റേഡിയോ ദിനം പുതിയ ലോകം പുതിയ റേഡിയോ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ ആശയം

ദിനാചരണത്തിന്റെ ഭാഗമായി പ്രസാർഭാരതി സി ഇ ഒ ശശിശേഖർ വെമ്പട്ടിയുമായി നടത്തുന്ന അഭിമുഖം ആകാശവാണി പ്രക്ഷേപണം ചെയ്യും രാവിലെ ഏഴര മുതൽ എഫ് എം റെയിൻബോ ചാനലുകളിലും രാജധാനി ചാനലുകളിലും പരിപാടി കേൾക്കാം യൂട്യൂബ് എയർ ലൈവ് ന്യൂസ് എന്നിവയിലും പരിപാടി യുണ്ടായിരിക്കും ഓൾ കേരളാ റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡണ്ട് സുനിൽകുമാർ പനമണ്ണ റേഡിയോദിനാ ആശംസകൾ നേർന്നു പാലക്കാട്ട് കേരളാ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈന്റ് ജില്ലാ കമ്മിറ്റി റേഡിയോദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ദേദ രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന

സ്ഥാപനങ്ങൾക്കാണ് കണക്ടിവിറ്റി നൽകുന്നത്

രാവിലെ പെരളശ്ശേരിയിൽ എ കെ ജി മ്യൂസിയത്തിന് അദ്ദേഹം തറക്കല്ലിടും മാങ്ങാട്ടുപറമ്പിൽ കണ്ണൂർ സർവകലാശാല നവകേരളം യുവകേരളം പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി കാസർക്കോട് കേന്ദ്ര സർവകലാശാല വയനാട് വെറ്റിനറി ആന്റ് ആനിമൽ സയൻസ് സർവകലാശാല വിദ്യാർത്ഥികളുമായും സംവദിക്കും

ഇതുസംബന്ധമായ അടിസ്ഥാനരേഖ പ്രസിദ്ധീകരിച്ചതായും കാൻസർ കെയർ ബോർഡ് നിലവിൽ വന്നതായും മന്ത്രി പറഞ്ഞു കോഴിക്കോട് മാവൂർ തെങ്ങിലക്കടവിൽ കോംപ്രഹെൻസീവ് കാൻസർ കെയർ ഹബ്ബ് നിർമാണ പ്രഖ്യാപനം നടത്തുകയായിരുന്നു മന്ത്രി ദേദ വയനാട് മെഡിക്കൽ കോളെജ് നാളെ ഉച്ചകഴിഞ്ഞ് മന്ത്രി കെ കെ ശൈലജ നാടിന് സമർപ്പിക്കും

തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും തീരദേശ മേഖലയിലെ മത്സ്യതൊഴിലാളികൾ ഉൾപ്പെടെ പാവപ്പെട്ടവർക്കു വേണ്ടി രണ്ടേകാൽ കോടി രൂപയിലേറെ ചെലവിലാണ് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചത് ദേദ സംസ്ഥാനത്ത് എൽ ഇ ഡി ബൾബുകളുടെ ഉപയോഗം സാർവത്രികമാക്കുമെന്ന് മന്ത്രി എം എം മണി പറഞ്ഞു വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനും ചാർജ്ജ് കുറയ്ക്കാനും ഇതുവഴി സാധിക്കും ഇരിട്ടി മിനി വൈദ്യുതി ഭവന് തറക്കല്ലിടുകയായിരുന്നു മന്ത്രി ഇരിട്ടിയെ സമ്പൂർണ്ണ ഫിലമെന്റ് രഹിത നഗരസഭയായും മന്ത്രി പ്രഖ്യാപിച്ചു കണ്ണൂർ പഴശ്ശി സാഗർ ചെറുകിട ജല വൈദ്യുത പദ്ധതിയുടെ പവർ ഹൌസ് നിർമാണവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു ദേദ മഞ്ചേശ്വരം പൊതുമരാമത്ത് റസ്റ്റ് ഹൌസിന്റെ പുതിയ ബ്ലോക്ക് മന്ത്രി ജി സുധാകരൻ ഓൺലൈനിൽ നാടിന് സമർപ്പിച്ചു

ഗുണഭോക്താക്കൾ നൈപുണ്യം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ജോലികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ആധുനിക സങ്കേതങ്ങളും ശൈലികളും ഉൾക്കൊണ്ടാൽ ലാഭകരമായ രീതിയിൽ അപ്പാരൽ പാർക്കിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടു പോകാമെന്നും മന്ത്രി പറഞ്ഞു ദേദ ഇടത് വലത് മുന്നണികളുടെ ജനദ്രോഹ നടപടികൾ ക്കെതിരായ പ്രക്ഷോഭത്തിന്റെ കാഹളമാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡണ്ട് കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പി രഘുനാഥ് പറഞ്ഞു കോഴിക്കോട് നഗരത്തിലെ വിജയയാത്ര സ്വീകരണ കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

മാർച്ച് ഏഴിന് തിരുവനന്തപുരത്ത് സമാപിക്കും ദ്ദേ ഐ എസ് എൽ ഫുട്ബോളിൽ ഹൈദരാബാദ് എഫ് സി ഈസ്റ്റ് ബംഗാൾ മത്സരം സമനിലയിൽ പിരിഞ്ഞു ഇരു ടീമുകളും ഓരോ ഗോളടിച്ചു ഇന്ന് വൈകീട്ട് ചെന്നൈയിൻ എഫ് സി ഗോവയെ നേരിടും ദേദ ബംഗളൂരുവിൽ കാഴ്ച പരിമിതരുടെ നാഗേഷ് ട്രോഫി ദേശീയ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു നാളെ ക്വാർട്ടറിൽ കേരളം ഹരിയാനയെ നേരിടും ദ്ദേ കൽപ്പറ്റയിൽ നിന്ന് കരിപ്പൂരിലേക്ക് പോകുന്നതിനിടെ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ സുമീത് കുമാറിനെ അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തെ നാല് വാഹനങ്ങളിൽ പിന്തുടർന്ന് അപായപ്പെടുത്താൻ ശ്രമം നടന്നതായി പരാതി വിവാദമായ സ്വർണക്കടത്ത് കേസന്വേഷണത്തിലൂടെ ശ്രദ്ധേയനായ ഉദ്യോഗസ്ഥനാണ് സുമീത് കുമാർ കൊണ്ടോട്ടി പൊലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ദേദ ഈ വർഷത്തെ ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരം പ്രശസ്ത സാഹിത്യകാരി കെ ബി ശ്രീദേവിക്ക് നൽകും

ദേദ ഹയർസെക്കണ്ടറി വിദ്യാർത്ഥികൾക്കായി കേരള കേന്ദ്ര സർവകലാശാലയുടെ തിരുവല്ല നിയമ പഠനവിഭാഗം വയനാട് പടിഞ്ഞാറത്തറ ഗവ ഹയർസെക്കണ്ടറി സ്കൂളിൽ നിയമസാക്ഷരതാ പരിപാടി സംഘടിപ്പിക്കും വൈകീട്ട് സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റി മെമ്പർ സെക്രട്ടറി ടി കെ നിസാർ അഹമ്മദ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും നിയമ പഠനവിഭാഗം മേധാവി ഡോ ജയശങ്കർ അധ്യക്ഷനായിരിക്കും ദേദ കണ്ണൂർ രാജ്യാന്തരവിമാനത്താവളത്തിൽ നിന്ന് വിദേശ കമ്പനികൾക്ക് രാജ്യാന്തര സർവീസുകൾ നടത്താൻ പോയിന്റ് ഓഫ് കോൾ പദവി നൽകണമെന്ന് കെ സുധാകരൻ എം പി ലോക്സഭയിൽ ആവശ്യപ്പെട്ടു കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾക്ക് വിലക്ക് നിലനിൽക്കുന്നതിനാൽ കണ്ണൂരിൽ ഇതിന് അനുമതി നൽകണമെന്നും അദ്ദേഹം പ്രമേയത്തിൽ പറഞ്ഞു